നയപരമായ തീരുമാനിമെടുത്തായി കേന്ദ്രം വിമുക്തഭടൻമാരുടെ പെൻഷനിൽ വാർഷിക ഭേദഗതി വരുത്തണമെന്ന ആവശ്യം തള്ളി

വീഴ്ച വരുത്തുന്ന ഗവൺമെന്റ് ജീവനക്കാരിൽ നിന്നും പിഴ ഈടാക്കാനുള്ള പ്രണാമം പദ്ധതി അസം ഗവൺമെന്റ് നടപ്പാക്കും

ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം

ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടി ഇന്ന് മുതൽ നടപ്പിലാക്കും

ഘടിപ്പിക്കാത്ത സ്കൂൾ വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്

സൌരഭ് വെർമ്മയും മിഥുൻ മഞ്ചുനാഥും ഏറ്റുമുട്ടും

രണ്ടു ്ര ദിവസം നീളുന്നതാണ് പ്രധാനമന്ത്രിയുടെ ലക്നൌ സന്ദർശനം പ കൂടുതൽ വിവരങ്ങളുമായി കരോൾ എബ്ഹാം അറുപതിനായിരം കോടി രൂപയുടെ ചില്വ് വരുന്ന പദ്ധതികളുടെ തറകല്ലിടീൽ കർമ്മത്തിലും നഗരവികസന്പ്രിപാടികളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും

വാർഷികം ആഘോഷിക്കുന്ന പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാൻമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും

രാജ്യത്താദൃമായാണ് ഇത്തരമൊരു കേന്ദ്രം സ്ഥാപിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ലക്നൌ നഗരത്തിലും പരിസരത്തും കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്

ഗവൺമെന്റ് നയങ്ങളുടെ ഭാഗമായി അഞ്ചുവർഷത്തിൽ ഒരിക്കൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ തയ്യാറാണെന്നും എല്ലാവർഷവും വർദ്ധിപ്പിച്ചാൽ വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബഞ്ചിനെ അറിയിച്ചു കേസ് വിധി പറയുന്നതിനായി അടുത്ത മാസത്തേക്ക് മാറ്റിവച്ചു ഇതിനുള്ളിൽ എല്ലാ ഭാഗത്തുനിന്നുമുള്ള വിശദീകരണങ്ങളും പൂർത്തിയായിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു

ബി

ബി

പ്രണാമം എന്നു പേരിട്ടിരിക്കുന്ന ഇത്തരത്തിലൊരു പദ്ധതി രാജ്യത്താദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് അസം

വൃദ്ധമാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നു കണ്ടെത്തിയാൽ അത്തരം ഉദ്യോഗസ്ഥരുടെ മാസ വേതനത്തിന്റെ പത്ത് ശ്രതമാനം മാതാപിതാക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഗവ്ൺമെന്റ് നിക്ഷേപിക്കും

ഈ വർഷത്തെ ഗാന്ധിജയന്തി മുതൽ പ്രണാമം പദ്ധതി നിലവിൽ വരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു

മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ ആകാശവാണിയും ദൂരദർശനും പ്രക്ഷേപണം ചെയ്യും

ഹെപ്പറ്റൈറ്റിസിനെതിരെയുള്ള ബോധവൽക്കരണത്തിലൂടെ രോഗനിർമ്മാർജ്ജനമാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഹെപ്പറ്റൈറ്റിസ് പരിശോധന ചികിത്സ എന്നതാണ് ഈ വർഷത്തെ സന്ദേശം ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ് നിയന്ത്രണ പദ്ധതിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും കൂടുതൽ വിവരങ്ങളുമായി കരോൾ എബ്പഹാം

ഹെപ്പറ്റൈറ്റിസ് ബിസി ബാധിച്ച രോഗിയിൽ ഏറെക്കാലം രോഗലക്ഷണങ്ങൾ കണ്ടെത്താനാകില്ല എന്നതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത രോഗികളിൽ ഇവ കണ്ടെത്തുന്നത് വൈകുന്നതാണ് പിന്നീട് അർബുദത്തിന് കാരണമാകുന്നത്

ഇന്ത്യയിൽ ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയ വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും ഹെപ്പറ്റൈറ്റിസ് ബി സി ബാധിതർക്ക് മരുന്നുകളും പരിശോധനകളും ഗവൺമെന്റ് ആശുപത്രികളിൽ സൌജന്യമായി ലഭ്യമാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഇതേ തുടർന്ന് ജില്ലാഭരണകൂടം വാഹനങ്ങൾ കെട്ട്രോപ്പിയിൽ നിന്ന് തിരിച്ച് വിട്ടിരിക്കുകയാണ്

തിരുവനന്തപുരം കേരളാദിത്യപുരത്ത് ഇന്നലെ സ്കൂൾ വാഹനം അപകടത്തിൽപ്പെട്ട പശ്ചാത്തലത്തിൽ എല്ലാ സ്കൂൾ വാഹനങ്ങളിലും മൂന്നാഴ്ചക്കകം ജി

എസ് സംവിധാനം ഘടിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം പെർമിറ്റ് റദ്ദാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു കൺട്രോൾ റൂമുകളിൽ ജി

എസ്

രാത്രി യാത്രാ നിരോധനം നീക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളിയാണ് കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ റിപ്പോർട്ട്

തങ്ങളുടെ സേവനങ്ങളിലൂടെ വ്യാപിക്കുന്ന അപകടകരമായ ഉള്ളടക്കങ്ങളിൽ സാമൂഹ്യമാധ്യമങ്ങൾ ഉത്തരവാദികളായിരിക്കുമെന്നും വ്യാജ വാർത്തകളെപറ്റിയും തെറ്റായ വിവരങ്ങളെപറ്റിയും പഠനം നടത്തിയ പാർലമെന്റ് കമ്മറ്റി വൃക്തമാക്കി രാഷ്ട്രീയ പ്രചരണങ്ങളെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ ഡിജിറ്റൽ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റപ്പെടേണ്ടതുണ്ടെന്നും കമ്മറ്റി നിർദ്ദേശിച്ചു രാജ്യത്തെ വിദ്യാഭ്യാസ ചിലവുകൾക്കായി സാങ്കേതിക വിദ്യാ കമ്പനികളിൽ നിന്നും നികുതി ഈടാക്ക്ണമെന്നും കമ്മറ്റി ശുപാർശ ചെയ്തു കേംബ്രിഡ്ജ് അനലിറ്റിക്ക വിവാദത്തെ് തുടർന്നാണ് ഈ കമ്മറ്റി രൂപീകരിക്കപ്പെട്ടത് അതിനിടെ ഇന്ത്യൻ പൌരൻമാരുടെ വ്യക്തിപരമായ വിവരങ്ങൾ നിയമവിരുദ്ധമായി കേംബ്രിഡ്ജ് അനലിറ്റിക്കയ്ക്കുള്ള പങ്കിനെപറ്റി ആന്ധേഷിക്കാൻ കേന്ദ്രം സി ബി ഐ യോട് ആവശ്യപ്പെട്ടതായി കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് രാജ്യസഭയെ അറിയിച്ചു

ഇതാദ്യമായാണ് ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ ഇരുവരും നേർക്കുനേർ വരുന്നത്

മലേഷ്യൻ താരം സതിഷ്തരൻ രാമചന്ദ്രനെ പരാജയപ്പെടുത്തിയാണ് മിഥുൻ സെമിയിലേക്ക് കടന്നത്